രാജ്യത്തെ കോവിഡ് പ്രതിരോധ നടപടികൾ പ്രധാനമന്ത്രി വിലയിരുത്തി

മണവും രുചിയും നഷ്ടപ്പെടുന്നത് കോവിഡിന്റെ പുതിയ ലക്ഷണം ക്തിനിക്കൽ മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ പുറത്തിറക്കി

കേരളത്തിൽ ഇന്നത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചു

ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കാബിനറ്റ് സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി ഐസിഎംആർ ഡയറക്ടർ ജനറൽ ബന്ധപ്പെട്ട ഉന്നതാധികാരസമിതി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് ദേശീയതലത്തിൽ സ്വീകരിച്ച മുന്നൊരുക്കങ്ങളും ചർച്ചയായി വിശദവിവരങ്ങളുമായി സിനു വോയിസ് ഡൽഹി ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികളും യോഗത്തിൽ ചർച്ച ചെയ്തു രാജ്യത്തെ മൊത്തം കോവിഡ് കേസുകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും അഞ്ച് സംസ്ഥാനങ്ങളിലാണെന്നും അതിൽ തന്നെ വലിയ നഗരങ്ങളിൽ കേസുകൾ കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്

രാജ്യത്ത് മൺസൂൺ കാലം കണക്കിലെടുത്ത് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും പ്രധാനമന്ത്രി ആരോഗ്യമന്ത്രാലയത്തിന് നിർദേശം നൽകി

ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയായിരിക്കും ചർച്ചു

പ്രധാനമന്ത്രിയുടെ നിർദേശത്തെ തുടർന്നാണ് യോഗം

പരിമിതികളുണ്ടെങ്കിലും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗിച്ചാൽ ഫലമുണ്ടാകുമെന്നും ഗുരുതര അവസ്ഥയുള്ളവർക്ക് ഈ മരുന്ന് നൽകരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു രോഗനിർണയത്തിന് ആർ

പ്രതിപക്ഷ നേതാവും പിഎംഎൽ എൻ പാർട്ടി അധ്യക്ഷനുമായ ഷഹ്ബാസ് ഷരീഫ് മുൻ പ്രധാനമന്ത്രി ഷഹീദ് അബ്ബാസി ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി എന്നിവരടക്കം നിരവധി പ്രമുഖർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു

കോവിഡ് രോഗ ലക്ഷണങ്ങളില്ലാത്ത ജീവനക്കാർക്കും സന്ദർശകർക്കും മാത്രമാണ് ഓഫീസുകളിൽ പ്രവേശനം അനുവദിക്കുക ഓഫീസിനുള്ളിൽ മുഖാവരണം ധരിക്കണം പ്രവേശന കവാടത്തിൽ സാനിറ്റൈസറും തെർമൽ സ്ക്രീനിംഗുള്ള സൌകര്യങ്ങളും ഉണ്ടാകണം സാമൂഹിക അകലം കൃത്യമായി പാലിക്കണം

വ്യാജമായ ഇത്തരം വാർത്ത്കൾ ദൂരുദ്ദേശപരമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്ത്ക് കർഷകർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് ഗോതമ്പ് കരിമ്പ് എന്നിവയുടെ ബദൽ ഉപയോഗ മാർഗങ്ങൾ അടക്കം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും എന്നും പിന്തുണ നല്കിയിട്ടേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി

പ്രതിസന്ധി ഘട്ടത്തിൽ സൌജന്യ റേഷനും പാചക വാതക സിലിണ്ടറും നൽകിയതിനാൽ പട്ടിണിയെ ചെറുക്കാൻ കഴിഞ്ഞു ദരിദ്രരുടെ ക്ഷേമത്തിൽ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ൂ ഡൽഹിയിൽ വെർചാർ റാലിയെ അഭിസംബോധന ചെയ്യവെ സ്റ്റ്മുതി് ഇറാനി പറഞ്ഞു

അതേസമയം കടകൾ തുറക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കായി വാഹനമോടിക്കുന്നതിനും ഇളവില്ല

ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല ഭക്തരെ പ്രവേശിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും അന്യസംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് പ്രവേശനം അനുവദിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുള്ള ദർശനവും നിർത്തിവച്ചു

കുവൈത്തിൽ നിന്ന് നാലും അബുദാബി ദോഹ ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഒന്ന് വീതവും വിമാനങ്ങൾ എത്തിച്ചേരും

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്ലാസ്മ പരിശോധനകൾ വ്യാപകമായതോടെ രക്തദാനത്തിന്റെ പ്രസക്തിയേറുകയാണ് റെഡ്ക്രോസിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെയും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസ്സർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ബരാമുള്ളയിൽ കമാൽകോട്ട സെക്ടറിൽ നിയന്ത്രണരേഖയോട് ചേർന്നാണ് സംഭവം ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിന് ഇന്ത്യയും ശക്തമായ മറുപടി നൽകി